ഇന്ന് പ്രസിദ്ധപ്പെടുത്തും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ

തദ്ദേശ ഭരണ സമിതികളുട്ട് ക്യാലാവധി ഇന്ന് അവസാനിക്കും

മുന്നണികൾ

നിർണ്ണയിച്ചത് ചോദ്യം ചെയ്ത ഹർജികൾ ഹൈക്കോടതി തള്ളി

നേരിയ കുറവ്

പെൻഷൻകാരുടെയും ചികിത്സയ്ക്കായുള്ള സി ജി എച്ച് എസ് കേന്ദ്രം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചു

ഏതാനും തദ്ദേശ സ്ഥാപനങ്ങളിൽ വോട്ടർപട്ടികയുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാൻ വൈകിയതിനെ തുടർന്നാണ് ഒരു ദിവസം നീട്ടി നൽകിയത്

ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് പുനർവിജ്ഞാപനം ചെയ്ത സംവരണ നിയോജക മണ്ഡലങ്ങളും വാർഡുകളും ഇന്ന് നറുളുക്കടുപ്പിലൂടെ തീരുമാനിക്കും

തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് പുതിയ ഭരണസമിതികൾ ചുമതല ഏറ്റെടുക്കുന്നതുവരെ ഉദ്യോഗസ്ഥ സമിതി ഭരണച്ചുമതല വഹിക്കും ജില്ലാ പഞ്ചായത്തിൽ കളക്ടർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ എന്നിവർക്കാണ് നേതൃത്വം ബ്ലോക്ക് പഞ്ചായത്തിൽ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻജിനീയർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവർ നയിക്കും പഞ്ചായത്തിൽ സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻജിനീയർ കൃഷി ഓഫീസർ എന്നിവർക്കാണ് ചുമതല കോർപ്പറേഷനിൽ കളക്ടർ സെക്രട്ടറി എൻജിനീയർ എന്നിവരും നഗരസഭയിൽ സെക്രട്ടറി എൻജിനീയർ ഐ സി ഡി എസ് ഉദ്യോഗസ്ഥൻ എന്നിവരുമാണ് ഭരണം നടത്തുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇൻട്രോ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കരുതെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു

തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സാഹചരൃത്തിൽ സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്ന നടപടി ക്രമങ്ങൾ ഉണ്ടാകരുതെന്ന് കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃക്തത വരുത്തിയത് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ലാത്ത ഉദ്യോഗസ്ഥരുടെ കാലാവധി നീട്ടൽ പിള്ളവാതത്തിന് തുള്ളിമരുന്ന് വിതരണും തുടങ്ങിയ പ്രചാരണങ്ങൾ രോഗങ്ങളെക്കുറിച്ച് ബ്രോ്ധ്വൽക്കരണം ആശ്രിത നിയമനം അധിക ചുമതല്ല് ന്ൽകൽ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാമ്പത്തിക സ്ഫ്ടായം വിരമിക്കൽ ഡെപ്യൂട്ടേഷൻ ഒഴിവ് നികൃത്തൽ കോടതി ഉത്തരവുള്ള നിയമനങ്ങൾ നിർമ്മാണങ്ങൾ ് എന്നിവയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനു്മതി ആവശ്യമില്ല ന്യൂസ് ഡെസ്ക് ആകാശ്വാണി

കോൺഗ്രസ് പട്ടിക തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പട്ടിക പ്രഖ്യാപിച്ചു

ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവിടും

ഡി എ യിൽ ധാരണയായി

ജെ പി യും നാലെണ്ണത്തിൽ ബി

എഫിൽ സി

ഡി എ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറ്റത്തിർക്കി

ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു

ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർഥികളെ പ്രഖ്യാപിച്ചു

ഐ അഞ്ചു സീറ്റിലും മത്സരിക്കും കേരള കോൺഗ്രസ് എം ജോസ് വിഭാഗവും ജനതാദൾ എ എസും എൽ ജെഡിയും ഓരോ സീറ്റിലും മത്സരിക്കുന്നുണ്ട് എൻഡിഎ സഖ്യം ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ പുറത്തിറക്കി

എഫ് കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി കോൺഗ്രസ് ഇന്നും ചർച്ച നടത്തും

ഈ സാഹചരൃത്തിലാണ് ഇന്ന് കോട്ടയം ഡി സി സിയും യു

തദ്ദേശം കോട്ടയം കോട്ടയം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന് കളക്ടറുടെ ചേംബറിൽ നടക്കും പാർട്ടികളും സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പാലിക്കുന്നുവെന്ന് ഉറപ്പു വരുത്തുന്നതിനുള്ള സ്റ്റാൻഡിങ്ങ് കമ്മിറ്റി യോഗത്തിൽ രൂപകരിക്കും

ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടി ്ര്ഷ്തിനിധികളുടെയും ബ്ലോക്ക് റിട്ടേണിംഗ് ഓഫീസർമാ്പ്പുടെയും യോഗം കളക്ടറുടെ അദ്ധ്യക്ഷതയിൽ ചേർന്നു ഒന്നാം ഘട്ടത്തിൽ അടുത്തമാസം എട്ടിനാണ് ഇടുക്കിയിലെ വോട്ടെടുപ്പ് തദ്ദേശം മലപ്പുറം മലപ്പുറത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരെഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള വോട്ടിങ് യന്ത്രങ്ങളുടെ പരിശോധന പൂർത്തിയാക്കിയതായി തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ടി

നഗരസഭകളിലേക്കുള്ള വോട്ടിങ് യന്ത്രങ്ങളുടെ ആദ്യ ഘട്ട പരിശോധനയും ബ്ലോക്ക് തല പരിശീലകർക്കുള്ള ക്ലാസുകളും പൂർത്തിയായി

തുടർച്ചയായി മൂന്നു തവണ സംവരണ സീറ്റായി നിശ്ചയിച്ച നടപടികൾക്കെതിരെയായിരുന്നു ഹർജികൾ സമർപ്പിക്കപ്പെട്ടത് വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടാൽ തെരഞ്ഞെടുപ്പ് വൈകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു

കോഴിക്കോട് നിബന്ധനകൾ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരണ നിരക്കിൽ കുറവ് വരുന്ന സാഹചരൃത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ ഫുട്ബോൾ ടർഫുകൾക്കും ഗ്രൌണ്ടുകൾക്കും നിബന്ധനകളോടെ തുറന്നു പ്രവർത്തിക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകി

എസ് ഇ

വിശദവിവരങ്ങളുമായി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയുള്ള വിഷയങ്ങൾ മാത്രമാണ് മന്ത്രിസഭ പരിഗണിക്കുക

ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി ഒരു ദിവസത്തേക്ക് കൂടി നീട്ടി ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കേസിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയുടെ ഇ

കസ്റ്റഡി ഇന്ന് അവസാനിക്കും വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഉച്ചയോടെ ബിനീഷിനെ ബംഗളുരുവിലെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് റിപ്പോർട്ട്

സംസ്ഥാന ഗവൺമെന്റിന്റെ അഴിമതികൾ തെരഞ്ഞെട്ടുപ്പിൽ ചർച്ചയാവാതിരിക്കാനാണ് ഓഡിറ്റിംഗ് നിർത്തിവച്ചിത്രെന്ന് അദ്ദേഹം ആരോപിച്ചു സ്വർണ്ണം പിടികൂടി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ചോക്ളേറ്റിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന സ്വർണ്ണം പിടികൂടി